ത തിങ്കളാഴ്ച ചേരാനിരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനം മാറ്റി വെയ്ക്കാൻ തീരുമാനിച്ചതായി റിപ്പോർട്ട്

ത ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം വാർത്തകൾ വിശദമായി കൊറോണ വൈറസിനെതിരെ വാക്സിൻ വികസിപ്പിക്കുന്നത് വരെ കോവിഡിനെതിരായ ഊർജ്ജസ്വലമായ പോരാട്ടം തുടരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു മാസ്ക്കും സാമൂഹിക അകലവും ശുചിത്വവും പാലിച്ച് കോവിഡിനെ അകറ്റി നിർത്താനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ പ്രതിസന്ധിയിലും വികസന പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകണമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു മണിപ്പൂർ ജല വിതരണ പദ്ധതിയ്ക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ തറക്കല്ലിടുകയായിരുന്നു പ്രധാനമന്ത്രി

ലക്ഷക്കണക്കിനാളുകൾക്ക് ശുദ്ധമായ കുടിവെള്ളവും ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലും പദ്ധതി വഴി ലഭിക്കും രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിച്ചതോടെ ഇന്ത്യയുടെ വളർച്ചാ ശക്തിയാകാൻ മേഖലയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു രുമ തിങ്കളാഴ്ച ചേരാനിരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനം മാറ്റിവെയ്ക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ധന ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടിയായിരുന്നു സഭ ചേരാൻ നിശ്ചയിച്ചിരുന്നത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ തിങ്കളാഴ്ച പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുമെന്നാണ് സൂചന സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമെങ്കിലും ഉടൻ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലെന്ന വിലയിരുത്തൽ യോഗത്തിൽ ഉണ്ടായതായും റിപ്പോർട്ടുകൾ പറയുന്നു

വിഷയം നാളത്തെ സർവ്വകക്ഷി യോഗത്തിൽ ഉന്നയിക്കുമെന്നും സതീശൻ അറിയിച്ചു രേര കോവിഡ് സംസ്ഥാനതല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന് തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെയും ജനപ്രതിനിധികളുടെയും യോഗം വൈകിട്ട് ചേരും വീഡിയോ കോൺഫറൻസ് വഴി സംഘടിപ്പിക്കുന്ന യോഗത്തിൽ മന്ത്രിമാരായ കെ കെ ശൈലജ എ സി മൊയ്തീൻ വകുപ്പ് സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുക്കും രേര ആലുവ മേഖലയിൽ കോവിഡ് വ്യാപനം തീവ്രമായതുകൊണ്ടാണ് കർഫ്യൂ പ്രഖ്യാപിക്കേണ്ടി വന്നതെന്ന് മന്ത്രി വി

നിയന്ത്രണം അനിവാര്യമാക്കേണ്ട സാഹചര്യമാണെന്ന് അദ്ദേഹം സ്വകാര്യ ചാനലിനോട് വ്യക്തമാക്കി അതേസമയം ചെല്ലാനത്ത് രോഗവ്യാപനം കുറയ്ക്കാൻ കഴിഞ്ഞതായും ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു ദേദ കോവിഡ് വ്യാപനത്തെ തുടർന്ന് കർഫ്യൂ പ്രഖ്യാപിച്ച ആലുവയിൽ പൊലീസ് റൂട്ട് മാർച്ച് നടത്തി കീഴ്മാട് എടത്തല ഉളിയന്നൂർ ചൂർണ്ണിക്കര എന്നിവിടങ്ങളിലും റൂട്ട് മാർച്ച് നടന്നു ചിലയിടങ്ങളിൽ കർഫ്യൂ ലംഘിച്ചവർക്കെതിരെ കേസെടുത്തു രേര കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കർശന നടപടികൾ വേണ്ടി വരുമെന്ന് സംസ്ഥാന കോവിഡ് നോഡൽ ഓഫീസർ ഡോ

ശക്തമായ ലോക്ഡൌണായിരിക്കും ഇനി വേണ്ടി വരികയെന്ന് അദ്ദേഹം സ്വകാര്യ വാർത്താ ചാനലിനോട് പറഞ്ഞു

ഇയാളുമായി സമ്പർക്കമുണ്ടായിരുന്ന മുപ്പതോളം പേരോട് ക്വാറന്റൈനിൽ പോകാൻ ആരോഗ്യ വിഭാഗം നിർദേശം നല്കിയിട്ടുണ്ട് അതിനിടെ പന്നിയങ്കരയിൽ ക്വാറന്റൈനിൽ കഴിയുകയായിരുന്ന എം

ഇയാളുടെ കുടുംബാംഗങ്ങൾ കോവിഡ് ചികിത്സയിലാണ് രുമ വിദേശത്ത് നിന്നെത്തി നിരീക്ഷണത്തിലിരിക്കെ മരിച്ച മലപ്പുറം സ്വദേശിയുടെ സ്രവ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് കാളികാവ് ചോക്കാട് സ്വദേശി ഇർഷാദ് അലിയെയാണ് ഇന്നലെ ഉച്ചയോടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രുമ അരൂർ മുതൽ ആലപ്പുഴ വരെ തീരദേശത്ത് സമ്പർക്കം വഴി കോവിഡ് വ്യാപിക്കുന്നു വിശദാംശങ്ങളുമായി ആലപ്പുഴ പ്രതിനിധി ആർ

ആകാശവാണി ജില്ലാ പ്രതിനിധി കെ

കാൻസർ രോഗികൾക്ക് വൈറസ് ബാധ ഉണ്ടാകാൻ സാധ്യത കണക്കിലെടുത്താണ് നടപടിയെന്ന് അധികൃതർ അറിയിച്ചു രേര കോഴിക്കോട് ഒളവണ്ണയിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ രണ്ട് ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ തീരുമാനിച്ചു ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം രുമ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇടുക്കിയിലേക്ക് മടങ്ങി വരുന്ന പ്രവാസികളുടെ എണ്ണം കുറഞ്ഞു

പ്രവാസികളായ നാല് തമിഴ്നാട് സ്വദേശികളും ഈ ദിവസങ്ങളിൽ കുമളി അതിർത്തി വഴി സ്വന്തം നാടുകളിലേക്ക് പോയി ഇടുക്കി മുള്ളരിങ്ങാട് ഓർത്തഡോക്സ് പള്ളി കൈമാറ്റത്തിന്റെ പേരിൽ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെടുത്തി ജില്ലാ ഭരണകൂടത്തിനെതിരായ ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ലെന്ന് ജില്ലാ കലക്ടർ എച്ച്

ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാനാണ് ശ്രമിച്ചതെന്ന് കലക്ടർ പറഞ്ഞു രുമ കോവിഡ് വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ വീഴ്ച മറയ്ക്കാൻ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ പഴി ചാരുന്നത് അപഹാസ്യമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

എ മജീദ് പ്രസ്താവനയിൽ പറഞ്ഞു ഗുരുതര സാഹചര്യം നേരിടാൻ പ്രതിപക്ഷത്തെയും ആരോഗ്യ സന്നദ്ധ പ്രവർത്തകരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകാൻ ഗവൺമെന്റ് തയ്യാറാവണമെന്ന് മജീദ് ആവശ്യപ്പെട്ടു രമ കോവിഡ് പ്രതിരോധത്തിനായി പശ്ചിമ ബംഗാളിൽ ആഴ്ചയിൽ രണ്ട് ദിവസത്തെ സമ്പൂർണ്ണ ലോക്ഡൌൺ ആരംഭിച്ചു ആദ്യ ദിവസമായ ഇന്ന് സംസ്ഥാനത്തെ എല്ലാ കട കമ്പോളങ്ങളും അടച്ചു

ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെന്ന സ്വകാര്യ സ്ഥാപനമാണ് പ്രക്ഷേപണത്തിന് തുടക്കമിട്ടത്

രാജ്യത്ത് എല്ലായിടത്തും വിനോദവും വാർത്തയും ഒരേപോലെ എത്തിക്കുന്ന ഏറ്റവും ലളിതമായ മാധ്യമം റേഡിയോ ആണെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ട്വിറ്ററിൽ കുറിച്ചു രുര പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധീര സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്ന ലോകമാന്യ ബാലഗംഗാധര തിലക് ചന്ദ്രശേഖർ ആസാദ് എന്നിവർക്ക് ജന്മവർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ പ്രകാശ് ജാവ്ദേക്കർ എന്നിവരും ആദരാഞ്ജലി അർപ്പിച്ചു രുമ തെക്കൻ കശ്മീരിലെ കുൽഗാം ജില്ലയിൽ ഭീകരരുടെ വെടിയേറ്റ് പൊലീസ് ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചു മിർ ബസാറിൽ രാത്രി വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അബ്ദുൾ റഷീദ് ദർ ആണ് മരിച്ചത് സംഭവത്തെ തുടർന്ന് സുരക്ഷാ സേന പ്രദേശത്ത് തെരച്ചിൽ ശക്തമാക്കി രുമ അന്യം നിന്ന കാർഷിക സമൃദ്ധിയെ തിരികെയെത്തിക്കാൻ ഇടുക്കി പെട്ടിമുടി ആദിവാസി ഗ്രാമത്തിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു ജില്ലയിൽ നിന്നും ആന്റണി മുനിയറ നൽകുന്ന റിപ്പോർട്ടിലേക്ക്

ദേഴ ഭാരത് മാല ദേശീയ പാതയെ സ്വാഗതം ചെയ്യുന്നതായി ബി ജെ പി വയനാട് ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു